പാകിസ്ഥാന്റെയും ഉഭയകക്ഷി പ്രശ്നമാണെന്ന് ചൈന

കഴിഞ്ഞ ഏപ്രിലിൽ ചൈനയിലാണ് ആദ്യ ഉച്ചകോടി നടന്നത് ഇൻഡ്യയും ചൈനയും തമ്മിലുളള വികസന പങ്കാളിത്ത സമീപനം കൂടുതൽ ശക്തമാക്കാനുളള ആശയങ്ങൾ കൈമാറുന്നതിനും ഉഭയകക്ഷി പ്രാദേശിക ആഗോള പ്രാധാന്യമുളള വിഷയങ്ങളിലുളള ചർച്ചകൾ തുടരുന്നതിനും ഉച്ചകോടി അവസരമൊരുക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

ദസറആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നുഅദ്ദേഹം

ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്താസ്റ്റിക്ക് ഒഴിവാക്കണമെന്നുംഅദ്ദേഹം നിർദ്ദേശിച്ചു

സ്ത്രീ ശാക്ത്രീക്ർണ്ത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെആവശ്യക്തൃഅദ്ദേഹംഎടുത്തുപറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ ക്ടീര്യെഅദ്ദേഹംഅഭിനന്ദിച്ചു

ഫ്രാൻസിലെ മെറിഗ്നാകിൽ ദസോർട്ട് കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വച്ചാണ് വിമാനം ഏറ്റുവാങ്ങിയത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തമാണ് ഇതെന്ന് രാജ്യ രക്ഷാമന്ത്രി പറഞ്ഞു ഫ്രഞ്ച് സൈനിക കാര്യ മന്ത്രി ഫ്ളോറൻസ് പാർലി ഇന്ത്യൻ വ്യോമസേന ഉപമേധാവി ഹർജിദ്സിംഗ് അറോറ ദസോർട്ട് ഏവിയേഷൻ സി

ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് ഫ്രാൻസെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മികച്ച പിന്തുണ നൽകുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന് രാജ്യരക്ഷാ മന്ത്രി നന്ദി അറിയിച്ചു

ന്യൂസ്ഡസ്ക് ആകാശവാണി

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയും മറ്റു രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്ന സംഘം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പൊലീസ് ഉദ്യോഗസ്ഥർ പിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തും

ഇക്കാര്യംസുപ്രീംകോടതിയെ ധരിപ്പിക്കണമെന്നുംഅദ്ദേഹം മുംബൈ ശിവജി പറഞ്ഞു പാർക്കിൽദസറആഘോഷങ്ങളുടെ ഭാഗമായിസംസാരിക്കുകയായിരുന്നുഅദ്ദേഹം

ജെ

രണ്ടു പേരെ കാണാതായി ധോൽപുർ ജില്ലയിൽ രണ്ടു വ്യത്യസ്ത സംഭവങ്ങളിലാണ് ദുർഗാവിഗ്രഹം നിമജ്ജനം ചെയ്യാനെത്തിയവർ ചമ്പൽ പാർവതി നദികളിൽ അപകടങ്ങളിൽപ്പെട്ടത് കാണാതായവർക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നതായി ധോൽപുർ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു

പാർട്ടി തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാവുന്നില്ലെന്നും ശ്രീ ശർമ്മ ആരോപിച്ചു ഇപ്പോഴും നിയന്ത്രണങ്ങൾ നില നിൽക്കുന്ന കശ്മീർ താഴ്വരയിലെ സ്ഥിതിഗതി വിലയിരുത്തിയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

താഴ്വരയിൽവാർത്താവി നിമയ ബന്ധത്തിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിലുമുള്ള പ്രതിസന്ധിതുടരുകയാണെന്നും പാർട്ടിവക്താവ് ശ്രീനഗറിൽ പ്രസ്താവിച്ചു ജമ്മു കശ്മീരിലെത്തുന്നു വിനോദസഞ്ചാരികൾഅവിടെകുടുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്

ഭിന്നതകൾ സാധാരണമാണ്ണെന്നും അവ ചർച്ചകളിലൂടെപരിഹരിക്കണമെന്നുംഅദ്ദേഷ്ട്അഭിപ്രായപ്പെട്ടു

അസം നടത്തിയസംയുക്ത നീക്കത്തിൽ ടിൻസുഖിയ ജില്ലയിൽ നിന്നാണ്ഇയാളെ പിടികൂടിയത്

നഗരസഭയിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ മുൻ നഗരസഭാ സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തും